പി ജയ്രാജൻ

തൊഴിൽ നിയമങ്ങളിൽ ആശ്വാസം കമ്പനി നിയമത്തിൽ മാറ്റം പരിസ്ഥിതി ചട്ടങ്ങളിൽ ഇളവ് തുടങ്ങി യവയും ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് ഉത്തേജനം നകുന്നതിനായി പ്രധാ നമന്ത്രി പ്രഖ്യാപിച്ചു

വീട്ടിൽ നിന്ന് ഓഫീസിലെത്താൻ വേണ്ടിവരുന്ന സമയം മാത്രം മതി ഈ വായ്പക്കെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി ഈ വിഭാഗക്കാർക്ക് പുതിയ വായ്പയിലോ വായ്പ ഒരു കോടി രൂപയായി വർധിപ്പിക്കുന്നതിലോ രണ്ട് ശത മാനം പലിശ ഇളവ് ലഭിക്കും ഉൽപന്നങ്ങൾ കയറ്റി അയക്കുന്നതിനെടുത്ത വായ്പകളിൽ പലിശയിളവ് മൂന്നിൽ നിന്ന് അഞ്ച് ശതമാനമായി വർധിപ്പിക്കും

ടി വെബ്സൈറ്റിൽ തന്നെ വായ്പ അപേക്ഷ നൽകുന്നതിന് സൌകര്യ മൊരുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൊതു മേഖല സ്ഥാപനങ്ങൾ വാ ങ്ങുന്നയിനങ്ങളിൽ മൂന്ന് ശതമാനം വനിതകൾ നടത്തുന്ന ചെറുകിട ഇടത്ത രം സംരംഭങ്ങളിൽ നിന്നാകണമെന്ന് വൃവസ്ഥ ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമ ന്ത്രി അറിയിച്ചു

പുതി യ ഇന്ത്യയിൽ ആരും തുടർച്ചയായി ബാങ്കു ശാഖകളിലേക്ക് പോകാൻ നിർബ ന്ധിക്കപ്പെടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കമ്പനി നിയമത്തിൽ ഭേദഗതി വരുത്തി രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെ ടുവിച്ചു

വ്യാഴാഴ്ച ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്

പൊതു മേഖലയിലും സ്വകാര്യ മേഖലയിലും ഉല്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പ് ചൈന ഗൾഫ് രാജ്യങ്ങൾ എ ന്നിവയടക്കം മാർക്കറ്റ് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വില കുറച്ചും ഗുണ മേന്മയോടും നൽകും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുതിയ ഭരാ വാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുക യായിരുന്നു മന്ത്രി വാണിജ്യ വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കേരള സോപ്സ് വിപുലീ കരിക്കുമെന്ന് മന്ത്രി ഇ

കോഴിക്കോട്ട് കേരള സോപ്സ് ഫാക്ടറി സന്ദർശിച്ച ശേഷം ഇ

ജയരാജൻ അറിയിച്ചു

ഈ വെല്ലുവിളി സ്വീകരിച്ച് മികച്ച ഗുണ മേന്മയിലും ആകർഷണീയമായ രീതിയിലും കേരള സോപ്സ് ഉത്പന്നങ്ങൾ വിപണിയിലിറക്കുമെന്നും മന്ത്രി പറഞ്ഞു ശബരിമലയിൽ വീണ്ടും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

മാധ്യമ പ്രവർത്തകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തി തിങ്കളാഴ്ച രാ വിലെ മുതൽ മാത്രമേ മാധ്യമപ്രവർത്തകരെ സന്നിധാനത്തേക്ക് കടത്തിവിടു കയുള്ളൂവെന്ന് പൊലീസ് അറിയിച്ചു തുലാമാസ പൂജകൾക്ക് നടതുറന്നപ്പോ ഴുണ്ടായ സംഘർഷം മുൻനിർത്തി ഇന്ന് രാവിലെ തന്നെ പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ പോലീസ് വിന്യാസം പൂർത്തിയാക്കും

സുപ്രിംകോടതി വിധി പ്രകാരം ശബരിമല ദർശനത്തിന് പോലീസ് സംരക്ഷ ണം നൽകുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ടി

നിലയ്ക്കൽ പമ്പ കാനനപാത സന്നിധാനം തുടങ്ങിയ സ്ഥലങ്ങളിൽ അനാവശ്യമായി ആളുകൾ തങ്ങുന്നത് ഒഴിവാക്കുമെന്നും ഇന്ന് മുതൽ പത്ത നംതിട്ട ജില്ലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ ഗവൺമെന്റിനെ കളങ്ക പ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് മന്ത്രി ഇ

ഗവൺ മെന്റിനെതിരെ ഗൂഢാലോചന നടത്തുന്നവർ ഒറ്റപ്പെടുമെന്നും ശബരിമല ത കർക്കാനുള്ള ശ്രമം പരാജയപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങ ളോട് പറഞ്ഞു

ശബരിമല ദർശനത്തിന് പോയ ശിവദാസൻ മരിച്ചത് പോലീസ് മർദനം മൂല മാണെന്ന് പകൽപോലെ വൃക്തമാണെന്ന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് പി

ആഭ്യന്തരമന്ത്രിക്കും പോലീസിനും ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു ശബരിമല തീർഥാടനത്തിന് പോയ പന്തളം സ്വദേശി ശിവദാസന്റെ മരണം തുടയെല്ല് പോട്ടി രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥ മിക റിപ്പോർട്ട് പോലീസിന് കൈമാറി

സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള വി തരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന ട്രഷറി ഡയറക് ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതിനായി ട്രഷറികളിൽ ക്രമീകരണം ഏർ പ്പെടുത്തി

ബില്ലുകൾ തയാറാക്കാനും ട്രഷറികളിൽ സമർപ്പിക്കുന്നതിനും ഡി

ഒ മാർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിന് ജില്ലാ ട്രിഷറി തലത്തിൽ ഹെൽ പ് ഡെയ്കുകൾ പ്രവർത്തിക്കും വകുപ്പ് തലവൻമാരുമായും ഡി

ഒ മാരു മായും ബന്ധപ്പെട്ട് ശമ്പള പിതരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതി നും സമയബന്ധിതമായി വിതരണം ഉറപ്പുവരുത്തുന്നതിനും ട്രഷറി ഡയറകട റേറ്റിൽ നോഡൽ ഓഫീസറെയും ചുമതലപ്പെടുത്തി റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിൽ ആദ്യ ദിനം കേരളത്തിന് മൂന്ന് സ്വർണം

ഒരു വെള്ളിയും രണ്ട് വെങ്കലവും ഒന്നാം ദിനം കേരളം നേടി

എൽ ഫുട്ബോളിൽ തുടർച്ചയായി നാലാം തവണയും കേരള ബ്ലാ സ്റ്റേഴ്സിന് സമനില മുംബൈയിൽ പൂനെ സിറ്റിക്കെതിരായി നടന്ന മത്സര ത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞത് ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ജയിച്ച ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ജയമറി ഞ്ഞിട്ടില്ല

കോഴിക്കോട് സമാപിച്ച സംസ്ഥാന ടെന്നീസ് വോളിബോൾ ചാംപ്യൻഷി പ്പിൽ സീനിയർ ആൺകുട്ടികളുടെയും സീനിയർ പെൺകുട്ടികളുടെയും വി ഭാഗത്തിൽ പാലക്കാട് ജേതാക്കളായി സീനിയർ ആൺകുട്ടികളുടെ വിഭാഗ ത്തിൽ കോഴിക്കോടിനാണ് രണ്ടാം സ്ഥാനം സീനിയർ പെൺകുട്ടികളുടെ വി ഭാഗത്തിൽ വയനാട് രണ്ടാം സ്ഥാനത്തെത്തി

പി നാലാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് രാവിലെ നട ക്കും മൂഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും

പുതുക്കിയ പോലീസ് പാഠ്യപ ദ്ധതി പ്രകാരം കമാൻഡോ പരിശീലനം കിട്ടിയവരാണ് ഇന്ന് പുറത്തിറങ്ങുന്ന ത്

സാധാരണ ഒക്ടോബർ പകുതിയോടെ എത്തേണ്ട തുലാവർഷം ഇത്ത വണ രണ്ടാഴ്ച വൈകിയാണ് എത്തിയത്

തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്യുകയാണ് നെയ്യാർ ഡാമിന്റെ നാല് ഷട്ടറുകൾ ഒരടിയോളം തുറന്നു സംസ്ഥാന അതിർത്തിയോടു ചേർന്ന വൃഷ്ടിപ്രദേശത്തു ലഭിച്ച കനത്ത മഴ യെത്തുടർന്ന് പാലക്കാട് വാളയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നു

വാളയാർ കോരയാർ തീരത്തു താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രളയത്തിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും പൂർണമായും പ്രവർത്തനസജ്ജമായതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറ ഞ്ഞു പ്രളയം ഇടുക്കി വയനാട് ആലപ്പുഴ ജില്ലകളിൽ ടൂറിസം മേഖലയിൽ കാര്യമായ നാശം വരുത്തിയെങ്കിലും വിനോദ സഞ്ചാരികളുടെ വരവിൽ കാ ര്യമായ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു ജില്ലാ ടൂറിസം പ്രമോ ഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച ഹൌസ്ബോട്ട് റാലി ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആത്മീയ സന്ദേശങ്ങൾക്കൊപ്പം രാജ്യത്തെ വൈവിധ്യങ്ങളായ സംസ്കാര ങ്ങളെ സമന്ധയിപ്പിക്കാൻ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് സൂഫിസമെന്ന് സ്പീ ക്കർ പി

പെരുമ്പടപ്പ് പുത്തൻപള്ളി നേർച്ചയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അ ദ്ദേഹം കോയമ്പത്തൂർ തൃശൂർ പാസഞ്ചർ തിങ്കളാഴ്ചയും തൃശൂർ കണ്ണൂർ പാസ ഞ്ചർ ചൊവ്വാഴ്ചയും പതിവു പോലെ സർവീസ് നടത്തുമെന്ന് റെയിൽവെ അ റിയിച്ചു ഈ ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരു ന്നു ഗ്രീൻ കാർപെറ്റ് ക്ളീൻ പാലക്കാട്പദ്ധതികളുടെ ഭാഗമായി മലമ്പുഴ ഉദ്യാന ത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളുടെയും സന്നദ്ധപ്രവർ ത്തകരുടെയും നേതൃത്തിൽ നടന്ന ത്രിദിന തീവ്ര ശുചീകരണ പ്രവർത്തന യജ്ഞത്തെ തുടർന്നാണ് പ്രഖ്യാപനം കർഷകരെ ആശ്രയിച്ചു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിലാവുകയും കർഷകർക്ക് നേട്ടം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറണമെന്ന് മ ന്ത്രി

രാജു പറഞ്ഞു പാലക്കാട് തിരുവിഴാംകുന്നിൽ ആരംഭിച്ച ഹാച്ചറിയു ടെ പ്രവർത്തനം ഉത്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാൽ ഉല്പാദനത്തിൽ സ്വയം പര്യാപ്തത എന്നു ലക്ഷ്യത്തെ പ്രളയം ബാധിച്ചെങ്കിലും പ്രതിസന്ധി പ രിഹരിച്ചു ഈ രംഗത്ത് നേട്ടമുണ്ടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മുതൽ മൂന്ന് ദിവസം കണ്ണൂർ ജില്ലയി ലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും

അബുദാബിയിലേക്കും തിരിച്ചും എയർ ഇന്ത്യാ എക്സ് പ്രസ് വിമാനത്തിന്റെ ടിക്കറ്റ് ബുക്കിങാണ് തുടങ്ങുന്നത്

മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ തൊഴിൽ ദായകർ പങ്കെടുക്കുന്ന മെഗാ തൊഴിൽ മേള കോട്ടയം ആതിരമ്പുഴയിലെ സർ വകലാശാല ക്യാംപസിൽ ഇന്ന് നടക്കും

എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്തി പദ്ധതിയുടെ ഭാഗമാ യി കൊല്ലം ജില്ലയിൻ തുടങ്ങുന്ന ലഹരി മോചനകേന്ദ്രം നെടുങ്ങോലം രാമറാ വു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് വൈകിട്ട് മന്ത്രി ടി

രാ മകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും